പൂൻ ചുഴലിക്കാറ്റ് ദുർബലമാകുന്നു

ഒഡീഷ സംസ്ഥാനങ്ങളിലെ ദുരിതബാധിതർക്ക് എല്ലാ സഹായവും നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

നാട്ടിലെത്തിച്ചതായി വ്യോമയാന മന്ത്രി ആഭ്യന്തര വിമാന സർവ്വീസ് പൂനരാരംഭിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ മന്ത്രാലയം പുറത്തിറക്കി

അസം മേഘാലയ എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുടെ ന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു

മരങ്ങൾ കടപുഴകുകയും വൈദ്യുതിബന്ധം വിച്ഛേദിക്കപ്പെടുകയും ചെയ്തു വീടുകൾക്കും കൃഷിയ്ക്കും നാശനഷ്ടമു ായി

ഇരു സംസ്ഥാനങ്ങളിലും ദേശീയ ദുരന്ത നിവാരണ് സേനാംഗങ്ങൾ രക്ഷാപ്രവർത്തനത്തിൽ പ്പ് ഏർപ്പെട്ടിരിക്കുകയാണ്

കേന്ദ്ര കാബിന്റ്റ് ഒസക്രട്ടറി രാജീവ് ഗൌബ സ്ഥി്തിഗതികൾ വിലയിരുത്തി

മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ഇളവു ാകും നിലവിലെ ശ്രമിക് പ്രത്യേക ട്രെയിനുകൾക്കും ്രപത്യേക എ

അതേസമയം നേരത്തെ നിലവിലു ായിരുന്ന പ്യാസഞ്ചർ എക്സ്പ്രസ് സബർബൻ ട്രെയിനുകൾ ഇനി അറിയിപ്പു ാകുന്നത് വരെ സർവ്വീസ് നടത്തില്ല

ആർ സി ടി സി വെബ്സൈറ്റ് മൊബൈൽ ആപ്പ് എന്നിവ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യാം

സി വെയിറ്റിംഗ് ലിസ്റ്റ് എന്നിവ ഉ ാകും

ടിക്കറ്റ് ഉറപ്പാക്കുന്നവർക്ക് മാത്രമേ റെയിൽവേ സ്റ്റേഷനുകളിൽ പ്രവേശനമുട് ാകൂ

എത്തുന്ന സംസ്ഥാനത്തെ ആരോഗ്യ മാർഗരേഖകൾ പാലിക്കണമെന്ന നിബന്ധനയുമു ്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ട്രെയിനുകളുടെ പട്ടിക റെയിൽവേ ബോർഡ് പ്രസിദ്ധീകരിച്ചു

വിവിധ റെയിൽവേ സ്റ്റേഷനുകളിട്ട് കൌ റുകളിലൂടെ അടുത്ത ര മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ ടിക്കറ്റ് പുനരാരംഭിക്കുമെന്നു

വിമാനത്തിന് പുറമെ കപ്പലിലും ഇന്ത്യാക്കാരെ നാട്ടിലെത്തിച്ചിട്ടു ് അതേസമയം കരമാർഗവും വിദേശത്ത് നിന്ന് ആളെ എത്തിക്കാൻ തയ്യാറെടുക്കുകയാണെന്ന് വിദേശകാര്യ സെക്രട്ടറി ഹർഷവർധൻ സിംഗ്ള പറഞ്ഞു യൂറോപ്പ് അടക്കം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇന്ത്യാക്കാരെ എത്തിക്കാൻ തയ്യാറെടുപ്പുകൾ നടത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു

കൂടുതൽ വിവരങ്ങളുമായി ലക്ഷ്മി ശ്രീവിജയ

ഓൺലൈനിലൂടെ ടിക്കറ്റ് ഉറപ്പാക്കിയവർക്ക് മാത്രമാകും വിമാനത്താവളങ്ങളിൽ അനുവദിക്കുക

ഒരു ബാഗ് മാത്രമേ വിമാനത്തിൽ കൊ ് പോകാൻ യാത്രക്കാരെ അനുവദിക്കൂ

യാത്രക്കാർ മുഖാവരണം അടക്കം കോവിഡ് പ്രതിരോധ നടപടികൾ സ്വീകരിക്കണമെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

കൊച്ചിയിലേക്ക് രൂ ം കോഴിക്കോട്ടേക്കും തിരുവനന്തപുരത്തേക്കും ഓര്യോ വിമാനങ്ങളുമാണ് ഇന്ന് സർവ്വീസ് നടത്തുന്നത്

മസ്ക്കറ്റിൽ നിന്നും കൊച്ചിയിലേക്കുള്ള വിമാനം അല്പസമയം മുമ്പ് എത്തിച്ചേർന്നു

മസ്ക്കറ്റിൽ നിന്നുള്ള പ്രവാസികളുമായി ഐ

ഈ ഘട്ടത്തിൽ ഇന്തോനേഷ്യ തായ്ല ് ആസ്ട്രേലിയ ഇറ്റലി ഫ്രാൻസ് ജർമ്മനി അയർല ് കാനഡ ജപ്പാൻ നൈജീരിയ കസാഖിസ്ഥാൻ ഉക്രൈൻ കിർഗിസ്ഥാൻ ബെലാറസ് ജോർജിയ തജിക്കിസ്ഥാൻ അർമേനിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ ഇന്ത്യക്കാരെ മടക്കിയെത്തിച്ചു

യാത്രക്കാർ വിമാന ടിക്കറ്റെടുത്ത് നാട്ടിൽ കാറന്റൈൻ കേന്ദ്രങ്ങളിൽ കഴിയാനുള്ള ചെലവും വഹിക്കണം